വാക്സിൻ കുത്തിവയ്പ്പ് ആരംഭിച്ചു വാക്സിൻ സ്വീകരിച്ച് പ്രധാനമന്ത്രിയും കോവിഡ് വ്യാപനത്തിൽ സ്പ്സ്മാനത്ത് നേരിയ കുറവ്

രണ്ടാം ഘട്ട വാക്സിൻ യിജ്ഞത്തിനുള്ള നടപടി ആരംഭിച്ചു

ടി

സി

സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകളുമായി രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും

പാലക്കാട് പതിപ്പിന് തുടക്കം

പതിനായിരം സർക്കാർ ആശുപത്രികളിൽ ഈ ഘട്ടത്തിൽ സൌജന്യമായി വാക്സിൻ നൽകും

മഹാമാരിയ്ക്കെതിരായ പോരാട്ടത്തിൽ നമ്മുടെ ഡോക്ടർമാരുടെയും ശാസ്ത്രജ്ഞൻമാരുടെയുമെല്ലാം ദ്രുതഗതിയിലുള്ള പ്രവർത്തനം ശ്രദ്ധേയമാണെന്നും രാജ്യത്തെ കോവിഡ് മുക്തമാക്കാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ന്യൂഡൽഹിയിലെ എയിംസ് ആശുപത്രിയിലാണ് പ്രധാനമന്ത്രി കോവിഡ് വാക്സിൻ സ്വീകരിച്ചത് പുതുച്ചേരിയിൽ നിന്നുള്ള സിസ്റ്റർ പി നിവേദയാണ് പ്രധാനമന്ത്രിക്ക് വാക്സിൻ കുത്തിവച്ചത്

കൊല്ലം ജില്ലയിലെ രണ്ടാം ഘട്ടം വ്യൂക്സിൻ യജ്ഞത്തിനുള്ള തയ്യാറെടുപ്പുകളെകുറിച്ച് കളക്ട്ട്ർ ബി

ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ ആപ്പിലൂടെ തത്സമയം രജിസ്റ്റർ ചെയ്താണ് വാക്സിൻ നൽകി തുടങ്ങിയത്

ആർ പരിശോധന സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ മൊബൈൽ സ്റ്റാറ്റിക് ലബോറട്ടറികളിൽ നടത്തുന്ന ആർ ടി

സി ആർ പരിശോധനയ്ക്ക് മാർഗനിർദ്ദേശം ആരോഗ്യവകുപ്പ് പുതുക്കി

സർക്കാർ ലാബുകളുടെ പരിശോധനാ ശേഷിക്കപ്പുറം ആർ

ആർ പരിശോധന ആവശ്യമായി വന്നാൽ അംഗീകൃത സ്വകാരൃ ലാബുകളിൽ പരിശോധനയ്ക്ക് അയക്കാം

ഉഭയകക്ഷി ചർച്ചകളിലൂടെ തീരുമാനത്തിലെത്താനാണ് സിപിഎം നീക്കം

എം സി

ഐ യോഗത്തിന് ശേഷമാകും എൽ

ഡി എഫ് സീറ്റ് വിഭജനം സംബന്ധിച്ച് ജോസഫ് വിഭാഗവുമായി ഇന്ന് കോൺഗ്രസ് ചർച്ച നടത്തും

മൂന്ന് മുന്നണികളിലായുള്ള എട്ട് കേരളാ കോൺഗ്രസ് വിഭാഗങ്ങളിൽ ആറ് വിഭാഗങ്ങളും കോട്ടയം ജില്ലയിലാണ് പ്രധാനമായും സീറ്റ് ആവശ്യപ്പെടുന്നത് വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ടോം മാത്യു

സുരേന്ദ്രൻ കെ സി

രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്ന് ശ്രീ സ്റ്റ്രേന്ദ്രൻ അറിയിച്ചു

തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ

രാഷ്ട്രീയ പാർട്ടിയാണ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടതെന്നും സർവ്വകക്ഷി യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു

എസ്

എസ്

എസ്

സി ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷകൾ ഇന്നുമുതൽ

എസ്

പ്രിയ തിയേറ്ററിൽ വൈകിട്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ മേളയ്ക്ക് ആരംഭം കുറിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തും

പരീക്ഷകൾ മാറ്റിവച്ചു മഹാത്മാ ഗാന്ധി സർവകലാശാല നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു

എസ് ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും വാഹന പണിമുടക്കിൽ പങ്കെടുക്കും

ഐ ലീഗ് ഐ ലീഗ് ഫുട്ബോളിൽ ആദ്യ റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഗോകുലം കേരള എഫ്

ഉച്ചയ്ക്ക് രണ്ടിന് കൊൽക്കത്തയിലാണ് മത്സരം